കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ്വർദ്ധൻ കൊറോണ വാക്സിന്റെ മനുഷ്യരിലുള്ള പരീക്ഷണം ആരംഭിച്ചു

ഏറ്റവും കൂടുതൽപൂരോഗികൾ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും

ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത് ആറ് ലക്ഷത്തിലധികം പേർ

മെക്സികോയിലും ബ്രസീലിലും കോവിഡ് രോഗികൾ പെരുകുന്നു

കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇതിനായി നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും നല്ല സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു മഹാമാരിക്കെതിരെ പൂർണമായും വിജയിക്കാൻ ഇന്തൃയ്ക്ക് ഉടൻ തന്നെ സാധിക്കുമെന്നും ശ്രീ

വാക്സിന്റെ പ്രാഥമിക പരീക്ഷണങ്ങളിൽ പാർശ്വ ഫലങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല ഇതു സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ഐ സി എം

അതേസമയം രോഗികളുടേയും രോഗമുക്തി നേടിയവരുടേയും എണ്ണത്തിലുള്ള വൃത്യാസം ക്രമാനുഗതമായി വർദ്ധിക്കുകയാണ്

പ്രദേശത്ത് വിന്യസിച്ചിട്ടുളള സൈനികരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി പ്രതികൂല സാഹചരൃങ്ങളിലും ധീരതയോടെ രാജ്യത്തെ സംരക്ഷിക്കാൻ കെൽപ്പുളള സൈനികരെ ഓർത്ത് അഭിമാനിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു നേരത്തെ അമർനാഥ് ക്ഷേത്രം സന്ദർശിച്ച കേന്ദ്രമന്ത്രി ഒരു മണിക്കൂർ സമയം അവിടെ ചെലവഴിച്ചു

എം നരവണെയും സന്ദർശനത്തിൽ അദ്ദേഹത്തിനൊപ്പമുണ്ട്

കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീരിൽ ഉണ്ടായ ആക്രമണത്തിൽ മുന്ന് പ്രദേശവാസികൾക്കാണ് ജീവൻ നഷ്ടമായത്

ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെട് പരിധിയിൽ വരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും അടുത്ത വർഷം മാർച്ചോടെ എല്ലാ സംസ്ഥാനങ്ങളേയും കേന്ദ്രഭരണ പ്രദേശങ്ങളേയും പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്

കോവിഡ് ബാധിച്ച് ഇന്നലെ രണ്ടു പേരാണ് മരിച്ചിത്

ചെന്നൈയിൽ പ്ലാസ്മ ബാങ്ക് ഉടൻ പ്രവർത്തനക്ഷമം ആകുമെന്ന് തമിഴ്നാട് ആരോഗൃമന്ത്രി സി

ആരോഗ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന മൂന്നംഗ സംഘം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി വേണ്ട നിർദേശങ്ങൾ നൽകും ദേശീയ രോഗ പ്രതിരോധ കേന്ദ്രം ഡയറക്ടർ ഡോ

സിങ് എയിംസ് ഡൽഹിയിലെ അസോസിയറ്റ് പ്രൊഫസർ നീരജ് നിശ്ചൽ എന്നിവരാണ് സംഘത്തിലെ മറ്റ് അംഗങ്ങൾ ബീഹാറിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സംസ്ഥാന് സർക്കാരുകൾ നിരന്തരം നിരീക്ഷിച്ചു വരുന്നതായും കൊറോണ വ്യാപനം തടയാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചതായും കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വിനി ്കുമാർ ചൌബേ വ്യക്തമാക്കി

ആറ് ലക്ഷത്ത്രീലധികം പേർ മരണമടഞ്ഞു

രണ്ട് ലക്ഷത്തിലധികം പേർക്കാണ് ഇവിടെ കോവിഡ് സ്ഥിരീകരിച്ചത്

കോവിഡ് സാഹചര്യത്തിൽ ആഗോളസാമ്പത്തിക രംഗത്തിന്റെ ഭാവി യോഗത്തിൽ ചർച്ചയായി

നിർമല സീതാരാമൻ വ്യക്മാക്കി

പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കും പരിരക്ഷ ലഭ്യമാകും തീവ്രവാദികളിൽ നിന്ന് നിരന്തരം ഭീഷണി നേരിടുന്ന തദ്ദേശ സ്വയംഭരണസ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സുരക്ഷിതത്വം ലഭ്യമാക്കി ജനാധിപത്യത്തെ അടിത്തട്ടിൽ ശക്തിപ്പടുത്തുകയാണ് ലക്ഷ്യം

നികുതിദായകർക്ക് ഐ

ആരോഗ്യമന്ത്രാലയത്തിന്റെ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുവേണം ഇത്തരം കേന്ദ്രങ്ങൾ സജ്ജീകരിക്കാൻ പത്ത് വയസിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ പ്രായാധികൃമുള്ളവർ എന്നീ വിഭാഗങ്ങളിലുള്ള രോഗികളെ ഇവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല കോവിഡ് സ്ഥിരീകരിച്ച വൃക്തികൾക്കും കോവിഡ് സംശയിക്കുന്നവർക്കും പ്രത്യേകം സൌകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ് കിടക്കകൾ ഒരു മീറ്റർ അകലത്തിലെങ്കിലും സജ്ജീകരിക്കണം

കൃഷിഭൂമികൾ റോഡുകൾ പാലങ്ങൾ വന്യജീവി പാർക്കുകൾ എന്നിവയ്ക്ക് വെളളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായി രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സജീവമായി തുടരുന്നു